ഗവണ്മെന്റ് വകുപ്പുകൾ സമയബന്ധിതമായി കുടിശ്ശികകൾ തീർക്കണമെന്ന് ധനമന്ത്രി നിർമ്മലാസീതാരാമൻ

പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ മാണി

ഛത്തീസ്ഗഡിലെ ദന്ദേവാഡ മണ്ഡലം കോൺഗ്രസിന്

കൊറിയ ഓപ്പൺ ബാഡ്മിൻൺ ടൂർണമെന്റ് പുരുഷ വിഭാഗം സിംഗിൾസിൽ പി

വികസനം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് ഉൌന്നൽ നല്കിയാകും പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടവുമായാണ് പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര പൊതുസഭയിൽ എത്തുന്നതെന്ന് ശ്രീ

കാലാവസ്ഥാ വൃതിയാനം ആഗോള ആരോഗ്യസുരക്ഷ പുനരുപയോഗ സാധ്യമായ ഊർജജം ശുചീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ നേടിയ വികസനം പ്രധാനമന്ത്രി ഉയർത്തി കാട്ടും

ഗൾഫ് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും നിലനിർത്തുന്നതിന് ഇന്ത്യ എല്ലാ പിന്തുണയും നല്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നല്കി പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് അനാസ്റ്റാസിയാദസ് ഗ്രീക്ക് പ്രധാനമന്ത്രി കൊയ്റിയാക്കോസ് മിറ്റ്സോടാക്കിസുമായും ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി

രാജൃത്ത്അസ്വസ്ഥതസൃഷ്ടിക്കു ന്നവരെസമാധാനമായിരിക്കാൻ അനുവദിക്കില്ലെന്ന് ബാലാകോട്ട്വ്യോമാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട്അദ്ദേഹംവൃക്തമാക്കി പുൽവാമ ഭീകരാക്രമണത്തിൽകൊല്ലപ്പെട്ട സൈനികരുടെകുടുംബങ്ങൾക്ക്അമൃതാനന്ദമയീ മഠം നൽകിയ അഞ്ച്ലക്ഷംരൂപ വീതമുള്ള ധനസഹായംഅദ്ദേഹംവിതരണംചെ കേന്ദ്രമന്ത്രിമാരായഅശ്വനി കുമാർചൌബെയും അനുരാഗ്താക്കൂറുംസന്നിഹിത്രാ്യിരുന്നു

സേവനദാതാക്കൾക്ക്കുടിശ്ശികഉണ്ടാകുന്നില്ലെന്ന്ഉറപ്പുവരുത്തുക യാണ്ലക്ഷ്യം വിവിധ മന്ത്രാലയങ്ങളിലെസെക്രട്ടറിമാർ സാമ്പത്തിക ഉപദേഷ്ടാക്കൾഎന്നിവരുമായുള്ളചർച്ചകൾക്ക്ശേഷമാണ് ധനകാര്യമന്ത്രി ഇക്കാര്യംഅറിയിച്ചത്

ഡി എഫ്

എ സ്ഥാനാർത്ഥി എൻ

ജെ പി നിലനിർത്തി

ജെ

ത്രിപുരയിലെ ഭദ്രഘട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെമിമിമജൂംദാർ സി

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

ഇപ്പോഴത്തെ പ്രഖ്യാപനം അനുസരിച്ച് നാഗോൺ ജില്ലയിലാകും ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഉണ്ടാവുക

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഫ്ളാറ്റ് ഉടമകൾക്ക് പൂർണ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

ലോകരണ്ടാം നമ്പർ താരംഡെൻമാർക്കിന്റെ ജാൻ ഒ ജോർഗെൻസനെയാണ്ഇന്ന്ക്ക് ാർട്ട്റിൽ പരാജയപ്പെടുത്തിയത്

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വത്തിന് നാല് രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്രതലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പ് വരുത്താൻ പുനഃസംഘടിപ്പിച്ച സുരക്ഷാ സമിതി വേണമെന്നും ഇന്ത്യുൾപ്പെടുന്ന നാല് രാജ്യങ്ങളും ആവശ്യപ്പെട്ടു സുരക്ഷാ സമിതിയെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഫലപ്രദവും ന്യായയുക്തവുമാക്കാൻ വികസ്വര രാജ്യങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തം ആവശ്യമുണ്ടെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു

ജയശങ്കള്ള് ബ്സീൽ വിദേശകാര്യമന്ത്രി ഏർണസ്റ്റോ അരയുജോ ജർമ്മൻ വിദേശകാര്യമന്ത്രി ഹെയിയോ മാസ് ജപ്പാൻ വിദേശകാരൃമൂന്ത്രി തോഷിമിസ്റ്റു മൊട്ടെഗി എന്നിവർ പങ്കെടുത്തു ന്യൂസ്ഡസ്ക് ആകാശവീാണി

അരുണാചൽ പ്രദേശിലെ തവാംഗിലെ ഖിർമുവിൽ നിന്നും യോംഗ് ഫുല്ലയിലേക്ക് പറക്കുകയായിരുന്നു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്

ശോഭനമായ ഭാവിയ്ക്ക് വിനോദ സഞ്ചാരവും അനുബന്ധതൊഴിൽ അവസരങ്ങളും എന്ന ആശയത്തിൽ ഉൌന്നിയാണ് ഈ വർഷത്തെ വിനോദ സഞ്ചാരദിനം ഇന്ത്യ ആചരിക്കുന്നത്

സ്ഥിതിഗതികൾവിലയിരുത്തിയമുഖ്യമന്ത്രി നിതീഷ്കുമാർഏത്സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കാൻ ദുരന്തനിവാരണസേനയോട്ആവശ്യപ്പെട്ടു

ഐക്യർമ്പ്രഷ്ടസഭയുടെ പൊതു സമ്മേളനത്തിനിടെ ദക്ഷിണ മദ്ധ്യേഷ്യ കാര്യങ്ങൾക്കുള്ള അമേരിക്കയുടെ ആക്ടിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ആലീസ് വെൽസ് ആണ് ഇക്കാര്യം പറഞ്ഞത്